മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള സാമാജികരുമായി മറ്റന്നാൾ ചർച്ച നടത്തും സർവകക്ഷിയോഗം ബുധനാഴ്ച

ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു

ഇത്തരത്തിൽ സെസ് ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കൾക്ക് അധിക ഭാരമായി മാറാൻ സാധ്യതയുണ്ടെന്നും ധനമന്ത്രാലയം വിലയിരുത്തി

വാർത്ത അടിസ്ഥാന രഹിതമാണെന്നും ജി

യ്ക്ക് മേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു

രാജൃത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് പാക്കേജിൽ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് നിലവിലെ സാഹചര്യം അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചതെന്നും കേന്ദ്രധനമന്ത്രി വ്യക്തമാക്കി

ഇതിനായി എല്ലാ വിമാനത്താവളങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ അരവിന്ദ് സിംഗ് അറിയിച്ചു കോവിഡ് പ്രതിരോധ മാർഗനിർദേശങ്ങൾ പൂർണമായി പാലിച്ചായിരിക്കും യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്നത്

വ്യക്തിശുചിത്വത്തിനുള്ള സൌകര്യങ്ങൾ മുതൽ അൾട്രാ വയലറ്റ് അണുനശീകരണ യന്ത്രങ്ങൾ പ്പ്ക്ര പ്രതിരോധ നടപടികളുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്

വന്ദേഭാരത് ദൌത്യത്തിന്റെ രണ്ടാം പാദത്തിലെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങൾ സർവ്വീസ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

യാത്രക്കാർക്കായി ഹോട്ടൽ മുറികളടക്കം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

പിമാരുടെയും എം

എ മാരുടെയും സംയുക്ത യോഗം വിളിച്ചു

അതിനിടെ അമേരിക്കയിലെ മലയാളികളുമായി ഇന്നലെ രാത്രി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തി

പ്രതിസന്ധി നേരിടാനുള്ള ദീർഘകാലു സ്റ്റ്മ്പത്തിക പദ്ധതികൾ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുത്ൽ ശക്തിപ്പെടുത്തുമെന്നും ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോദബയാ രജ്പക്സെയുമായി ടെലഫോണിലൂടെ നടത്തിയ സംഭാഷണത്തിൽ ഉറപ്പ് നൽകിയതായി അദ്ദേഹം പറഞ്ഞു

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്

എന്നാൽ സംസ്ഥാനത്ത് കോവിഡ് സമൂഹവ്യാപനം ഇല്ലെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

ഇന്നലെ മൂന്ന് പേർ രോഗ മുക്തി നേടി

കോവിഡ് വ്യാപനം പ്രതിരോധിക്കുവാൻ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ റംസാൻ പ്രാർത്ഥനകളും ഈദു നമസ്കാരവും വീടുകളിൽ തന്നെയാണ് നിർവ്വഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ എന്നാൽ ലക്ഷദ്വീപ് തമിഴ്നാട് മഹാരാഷ്ട്ര കർണ്ണാടക എന്നിവിടങ്ങളിലും ഉത്തരേന്തൃയിലും നാളെയാണ് ഈദുൽ ഫിത്തർ

ലഡാക് പോലീസിനായി രൂപകല്പന ചെയ്ത പുതിയ അടയാളം ചിഹ്നം പതാക എന്നിവയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണർ ആർ